പൂർണ്ണമായിട്ടില്ലെന്ന് ഇന്ത്യ കമാൻഡർ തല ചർച്ച ഉടൻ ആരംഭിക്കുമെന്ന് വിദേശകാരൃമന്ത്രാലയം

കോവിഡ് ആശുപത്രിയാക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ സംസ്ഥാനത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നിയന്ത്രിത മൽസ്യബന്ധനം അനുവദിക്കും

ഇന്ന് ബലി പെരുന്നാൾ കോവിഡ് മാർഗ്ഗരേഖ പാലിച്ചാണ് പെരുന്നാൾ നമസ്ക്കാരം

മഴയ്ക്ക് സാധ്യത

ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്ത്യയുടെയും ചൈനയുടെയും മുതിർന്ന സൈനിക കമാൻഡർമാർ ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ്ശ് ശ്രീവാസ്തവ പറഞ്ഞു

അതിർത്തിയിൽ ശ്ലാന്തിയും സമാധാനവും പൂർണമായി പുനസ്ഥാപിക്കുന്നതീന് ചൈന ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഇന്ത്യ പ്രിത്യീക്ഷിക്കുന്നതായും വക്താവ് പറഞ്ഞു

ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങൾക്ക് പുറമെ യു എസ് കാനഡ യു

കിഴക്കനേഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ ബംഗ്ലാദേശ് മ്യാൻമർ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നും വിമാനങ്ങൾ എത്തും

പുതിയ നയത്തിന് സർക്കാർ അംഗീകാരം നൽകിയതിൽ സന്തോഷിക്കുന്നതായി ഉപരാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു മാതൃഭാഷയ്ക്കും രാജ്യത്തെ മറ്റ് ശ്രേഷ്ഠഭാഷകൾക്കും പ്രാധാന്യം ലഭിക്കുകയാണ്

ധാർമ്മികതയ്ക്കും ഭരണഘടനാ മൂലൃങ്ങൾക്കും മാനവികതയ്ക്കും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ നയം ശ്രേഷ്ഠപൌരൻമാരെ വാർത്തെടുക്കാൻ സഹായകരമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ദേശീയ ആയുഷ്മിഷന്റെ കീഴിലുള്ള കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി ശ്രീ

സംസ്ഥാന ആരോഗ്യമന്ത്രി മാരുമായി വെബിനാറിൽ അദ്ദേഹം ആശയവിനിമയം നടത്തി

കേരളത്തിൽ എം പി വീരേന്ദ്രകുമാറിന്റെയ്യും യു

വിജ്ഞാപനം ആഗ്ന്റ്റ് ആറിന് പുറപ്പെടുവിക്കും

നേരത്തെ കോൺഗ്രസിൽ ചേർന്ന ആറ് ബി

പി എം എൽ

എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നത് ചോദ്യം ചെയ്ത് ബി

പിയും ബി ജെ പി എം

എ മദൻ ദിലാവറും നൽകിയ ഹർജിയിലാണ് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ നടപടി

എൽ എമാർ കോൺഗ്രസിൽ ലയിച്ചതിനെ ചോദ്യം ചെയ്ത് ബി എസ് പി ദേശീയ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്ര മിശ്രയും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു

എന്നാൽ രാജ്യത്ത് കോവിഡ് മരണനിരക്ക് കുറവുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം

അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരം ജന്റരിൽ ആശുപത്രിയെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റും ന്നീല്വിൽ ഇവിടെ ചികിത്സയിലുള്ള രോഗികൾക്ക് നഗരത്തിലെ ്സ്ർക്കാർ ആശുപത്രികളിലും മെഡിക്കൽകോളേജിലും ക്രുമീകരണം ഏർപ്പെടുത്തി ജനറൽ ആശുപത്രിയില്ലെ ്ഒൻപതാം വാർഡിലെ രോഗികളെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് അവിടെത്തന്നെ ചികിത്സിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

എസ് ആർ

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സർവ്വീസ്

കൊല്ലത്ത് കണ്ടെയിൻമെന്റ് മേഖലകളിൽ ഇളവ് അനുവദിച്ച സ്ഥലങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കശുവണ്ടി ഫാക്ടറികൾ തുറക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിജിലൻസ് ഉൾപ്പെടെയുള്ള പോലീസിന്റെ എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും ഉദ്യോഗസ്ഥരെ നിയോഗിക്കും

എല്ലാ ബോട്ടുകളും രജിസ്ട്രേഷൻ നമ്മിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാം കണ്ടെയിൻമെന്റ് സോണിലും മത്സ്യബന്ധനം നടത്താം

മഹത്തായ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന് പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമാണിത്

കോവിഡിനെ തുടർന്ന് പല പള്ളികളിലും നമസ്ക്കാരം വേണ്ടെന്ന് പള്ളിക്കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട്

മുൻകരുതലുകൾ പാലിച്ച് പ്രാർത്ഥനകളോടെയാണ് തീർത്ഥാടകർ അറഫയിലെത്തിയത്

ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്

അടുത്ത രണ്ടു ദിവീസങ്ങളിലും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നുറിയിപ്പ് നൽകിയിട്ടുണ്ട്

മുതിർന്ന നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരം നാളെ ആരംഭിക്കും

ഒ രാജഗോപാൽ എം

ഇതിനോടനുബന്ധിച്ച് ജില്ലകളിൽ വെർചൽ റാലികളും സംഘടിപ്പിച്ചിട്ടുണ്ട്